ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർക് അടിയന്തിര നിധിയിലേക്ക് ഇന്ത്യ ഒരു കോടി ഡോളർ വാഗ്ദാനം ചെയ്തു

അമേരിക്കൻ ഫെഡറൽ റിസർവ് പ്രധാന പലിശ നിരക്കുകളിൽ കുറവ് വരുത്തി

സാർക് അംഗരാജ്യങ്ങളുടെ വീഡിയോ കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രോഗത്തെ നേരിടാൻ സാർക് അടിയന്തര നിധി രൂപീകരിക്കണമെന്നും ഇതിലേക്ക് ഇന്ത്യ ഒരു കോടി ഡോളർ നൽകുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു

ഡോക്ടർമുള്ളും വിദഗ്ദ്ധരും അടങ്ങുന്ന ദ്രുത പ്രതികരണ സംഘത്തെ ഇന്ത്യ സജ്ജ്മാക്കിയിട്ടുണ്ട് രോഗവ്യാപനം നിരീക്ഷിക്കാനായി സമഗ്രമായ് പ്പോർട്ടൽ സംവിധാനവും നിലവിലുണ്ട്

വരും മാസങ്ങളിലും രോഗത്തിനെതിരെ ജാഗ്രത തുടരണമെന്ന് അഫ്ഗാനിസ്ഥാൻ പ്രസിഡന്റ് അഷ്റഫ് ഘനി നിർദ്ദേശിച്ചു

രോഗത്തെ നേരിടാൻ ഒറ്റക്കെട്ടായി നീങ്ങാനുള്ള തീരുമാനത്തെ നേപ്പാൾ പ്രധാനമന്ത്രി കെ

പാകിസ്ഥാൻ ആരോഗ്യമന്ത്രി സഫർ മിർസയും വീഡിയോ കോൺഫറൻസിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഉത്തരാഖണ്ഡ് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ പുതിയ ഓരോ കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു ഉത്തരാഖണ്ഡിലെ ആദ്യ കൊറോണ ബാധയാണിത്

തമിഴ്നാട് ആന്ധ്രാപ്രദേശ് പഞ്ചാബ് സംസ്ഥാനങ്ങളിൽ ഓരോ കേസുകളും സ്ഥിരീകരിച്ചിട്ടുണ്ട്

ഇറാനിലെ ടെഹ്റാൻ ഷിറാസ് മേഖലകളിൽ നിന്നുള്ളവരാണ് പുതിയ സംഘത്തിലുള്ളത്

ജയശങ്കർ ട്വിറ്ററിൽ കുറിച്ചു

മൂന്നാറിൽ റിസോർട്ടിൽ താമസിച്ച ബ്രിട്ടീഷ് പൌരനും സ്പെയിനിൽ നിന്ന് പഠനകോഴ്സ് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് എത്തിയ ഡോക്ടർക്കുമാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്

വൈകിട്ട് നാലിന് മാസ്ക്കറ്റ് ഹോട്ടലിലാണ് യോഗം സെൻസസ് സംബന്ധിച്ച വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് നേരത്തെ സർവകക്ഷിയോഗം വിളിച്ചിരുന്നത്

റിസോർട്ടുകൾ ഹോം സ്റ്റേകൾ ഹോട്ടലുകൾ എന്നിവിടങ്ങളിൽ കഴിയുന്ന വിദേശികളുടെ യാത്രാവിവരങ്ങളെപ്പറ്റി ആവ്വർതാമസിക്കുന്ന സ്ഥാപനങ്ങളുടെ നടത്തിപ്പുകാർ ജില്ലുമുട്രങ്ങകൂടത്തെ അറിയിക്കണം

വിശദാംശങ്ങളിലേക്ക്

ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കണം പനിയോ ചുമയോ ഉള്ളവർ മറ്റുള്ളവരുമായി ഇടപഴകുന്നത് ഒഴിവാക്കുക

പൊതു സ്ഥലങ്ങളിൽ തുപ്പുകയോ മൂക്ക് ചീറ്റുകയോ ചെയ്യുന്നത് ഒഴിവാക്കണം എല്ലാവരും സോപ്പും വെള്ളവുമുപയോഗിച്ചോ ആൾക്കഹോൾ അടങ്ങിയ ഹാൻഡ് വാഷ് സാനിസൈറ്റർ തുടങ്ങിയവ ഉപയോഗിച്ചോ ഇടയ്ക്കിടെ കൈകൾ വൃത്തിയാക്കുക

സർക്കാർ അർദ്ധ സർക്കാർ ഓഫീസുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ബാങ്കുകൾ എന്നിവയിൽ സ്ഥാപനത്തിലേക്ക് ജീവനക്കാരും പൊതുജനങ്ങളും പ്രവേശിക്കുന്നതിനുമുമ്പ് ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിക്കുന്നതിനോ ഹാൻഡ് വാഷ് സോപ്പ് എന്നിവ ഉപയോഗിച്ച് കഴുകുന്നതിനോ ഉള്ള സൌകര്യം ഒരുക്കണം

ഇതിനായി എല്ലാ പ്രധാന ഓഫീസുകളുടേയും കവാടത്തോട് ചേർന്ന് ബ്രേക്ക് ദ ചെയിൻ കിയോസ്കുകൾ സ്ഥാപിക്കും

സി കോച്ചുകളിലെ യാത്രക്കാർ ആവശ്യഉപ്പെടുകയാണെങ്കിൽ മാത്രം കമ്പിളി പുതപ്പ് നൽകാനും നിർദ്ദേശമുണ്ട്ട്

എന്നാൽ സർക്കാർ ഇന്ന് സഭയിൽ വിശ്വാസം തെളിയിക്കണമെന്ന് ഗവർണർ ലാൽജി ഠണ്ഡൻ നിർദ്ദേശിച്ചിട്ടുണ്ട്

എൽ എ മാർ രാജിവച്ചതോടെയാണ് സർക്കാർ പ്രതിസന്ധിയിലായത് സഭയിൽ ഹാജരാകണമെന്ന് കോൺഗ്രസ്സ് എം

എ മാർക്ക് വിപ്പ് നൽകി അതേസമയം വിമത എം എൽ എ മാർ വീണ്ടും സ്പീക്കർക്ക് രാജിക്കത്ത് കൈമാറി സഭാ സമ്മേളനത്തിന് മുന്നോടിയായി ഭോപ്പാലിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു

എൽ എ മാർ സ്പീക്കർക്ക് രാജിക്കത്ത് നൽകി ഇവരുടെ രാജി സ്വീകരിച്ചതായി സ്പീക്കർ രാജേന്ദ്ര ത്രിവേദി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു

കൊറോണ വ്യാപനം മൂലമുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധികളെ പ്രതിരോധിക്കാനായാണ് ഈ നടപടി കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ ഇത് രണ്ടാം തവണയാണ് അമേരിക്കയിലെ പരമോന്നത ധനകാര്യ സ്ഥാപനം പലിശ നിരക്കുകൾ കുറയ്ക്കുന്നത്

തീരുമാനത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡോണൾഡ് ട്രംപ് സ്പാഗിത്രം ചെയ്തു

കൊറോണ ബാധിച്ച് ചൈനയ്ക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചത് ഇറ്റലിയിലാണ്